പ്രചാരണ സമാപനത്തോടു ബന്ധപ്പെട്ട് ഇന്നലെ സംസ്ഥാനത്ത് വ്യാപകമായ അക്രമ സംഭവങ്ങൾ തെരഞ്ഞെടുപ്പിന് സുരക്ഷാക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി

രക്ഷാപ്രവർത്തന ത്തിന് കേരളത്തിൽനിന്ന് പ്രത്യേക മെഡിക്കൽ സംഘം കൊളംബോ യിലേക്ക് പോകും സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സർവീസസിന് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യദിവസം ഇന്ത്യക്ക് രണ്ട്

മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു

ഒരു മാസത്തിലേറെ നീണ്ട ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമാപനത്തോട് ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പലയിടത്തും ഇന്നലെ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായി തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ നേർക്കും ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുനേർക്കും കയ്യേറ്റ ശ്രമമുണ്ടായി തിരുവനന്തപുരത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ

ആന്റണിയുടെ റോഡ്ഷോയ്ക്കു നേരെയും ആക്രമണമുണ്ടായി

കണ്ണൂരിൽ നഗരത്തിലും പഴയ ങ്ങാടി മട്ടന്നൂർ എന്നിവിടങ്ങളിലും സംഘർഷമുണ്ടായി ഏതാനുംപേർക്ക് പരിക്കേറ്റു കാഞ്ഞിരപ്പള്ളിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ റോഡ്ഷോ ഇടതുമുന്നണി പ്രവർത്തകർ തടഞ്ഞു പൊന്നാനിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വാഹനം തടഞ്ഞതിനെ തുടർന്ന് യു ഡി എഫ് എൽഡി എഫ് സംഘർഷമുണ്ടായി പൊലീസ് നാലുത വണ ഗ്രനേഡ് പ്രയോഗിച്ചാണ് പ്രവർത്തകരെ വിരട്ടിയോടിച്ചത് കൊച്ചി പാലാരിവട്ടത്ത് എൽ ഡി എഫ് എസ് ഡി പി ഐ പ്രവർത്തകർ തമ്മിലും സംഘർഷമുണ്ടായി വടകര വില്ല്യാപ്പള്ളിയിൽ എൽ ഡ്രി എഫ് യു ഡി എഫ് സംഘർഷത്തിൽ ഒരു പൊലീസ് ഉദ്യേഗസ്ഥനുൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റു മലപ്പുറത്തും മണ്ണാർക്കാട്ടും ഇരുമുന്നണികളിലെ പ്രവർത്തകർ ഏറ്റുമുട്ടി

കുഴൽമ ന്ദം മണ്ണാർക്കാട് നെന്മാറ എന്നിവിടങ്ങളിലാണ് സംഘർഷമുണ്ടായത്

കാസർക്കോട് പടന്ന ഉദുമ എന്നിവിടങ്ങളിൽ ഏറ്റുമുട്ടിയ മുന്നണി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പൊലീസ് നാലു തവണ ഗ്രനേഡ് പ്രയോഗി ച്ചു മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഏതാനും പേർക്ക് പരിക്കേറ്റു

കായംകു ളത്തും വള്ളിക്കുന്നും കാമ്പിശ്ശേരിയിലും സംഘർഷമുണ്ടായി

പൊലീസ് സ്റ്റേഷൻ ഇലക്ഷൻ സബ് ഡിവി ഷൻ ജില്ലാ തലങ്ങളിൽ സ്ട്രൈക്കിംഗ് സംഘങ്ങളെയും നിയോഗിച്ചു റേഞ്ച് ഐ ജി മാരും സോളൻ എ ഡി ജി പിമാരും സംസ്ഥാന പൊലീസ് മേധാ വിയുമായിരിക്കും സ്ട്രൈക്കിംഗ് സംഘങ്ങളെ നിയന്ത്രിക്കുന്നത്

മാവോയിസ്റ്റ് ഭീഷണിയും പ്രശ്നസാധ്യതയും കണ്ടെത്തിയ സ്ഥലങ്ങളിലും ബൂത്തുകളിലും കേന്ദ്ര സായുധ പൊലീസ് സംഘത്തെ വിന്യസിച്ചു

തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് സി പി ഐ എം വ്യാപക ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് കെ പി സി സി പ്രസി ഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി സ്ഥാനാർത്ഥികളുടെയും മുതിർന്ന നേതാക്കളുടെയും റോഡ്ഷോ തടഞ്ഞ നടപടി ജനാധിപതൃത്തിൽ കേട്ടുകേൾവിയില്ലാത്താണെന്ന് മുല്ലപ്പള്ളി അഭിപ്രായപ്പെട്ടു നേതാക്കൾക്കു നേരെ ഇത്തരത്തിലാണ് ആക്രമണമുണ്ടാകുന്നതെങ്കിൽ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ടാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ

ഇത്തരം ഒരു ശ്രമം സംസ്ഥാനത്തും തന്റെ ജീവിതത്തിലും ആദ്യമാണെന്ന് ആന്റണി പറഞ്ഞു അക്രമത്തിന്റെ കാര്യ ത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരേതൂവൽ പക്ഷികളാണെന്നും ആന്റണി കുറ്റപ്പെടുത്തി

പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണ മെന്ന് അവർ ആവശ്യപ്പെട്ടു

വേണു ഗോപാൽ കല്പറ്റയിൽ കുറ്റപ്പെടുത്തി ശബരിമല വിഷയത്തിൽ ശക്ത മായ നടപടിയെടുക്കണമെന്ന കേന്ദ്രത്തിന്റെ കത്ത് ഇപ്പോഴാണ് മുഖ്യമന്ത്രി പുറത്തുവിട്ടതെന്നും വേണുഗോപാൽ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഒത്തുകളിയാണ് ഇതിൽനിന്ന് വ്യക്തമാകുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞു പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശബരിമല അയ്യ പ്പനെ മുൻനിർത്തി വോട്ടു തേടിയെന്ന പരാതി സംസ്ഥാന മുഖൃതെരഞ്ഞെ ടുപ്പ് ഓഫീസറുടെ പരിഗണനയ്ക്കു വിട്ടതായി ജില്ലാ വരണാധികാരി കൂടിയായ കലക്ടർ പി

പരാതിക്കൊപ്പം ലഭിച്ച വീഡിയോ ദൃശ്യങ്ങൾ നിരീക്ഷണസമിതി പരിശോധിച്ച് ജില്ലാകലക്ടർക്ക് കൈമാറിയി രുന്നു

കാസർകോട് മൊഗ്രാൽ പുത്തൂർ സ്വദേശി പി

റസീനയാണ് സ്ഫോടനത്തിൽ മരിച്ച മലയാളി

ഇവരുടെ ബന്ധുക്കളുമായും ശ്രീലങ്കൻ ഹൈക്കമ്മീഷണ റുമായും നോർക്ക അധികൃതർ ബന്ധപ്പെട്ടുവരികയാണ് റസീനയുടെ കുടും ബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജ യൻ അറിയിച്ചു ഈസ്റ്റർ ദിനത്തിലുണ്ടായ ആക്രമണത്തെ അദ്ദേഹം അപ ലപിച്ചു ജാതീയ അസഹിഷ്ണുതയാണ് ആക്രമണത്തിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീലങ്കയിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പ്രത്യേക മെഡിക്കൽ സംഘത്തിന് രൂപം നൽകിയതായി മന്ത്രി കെ

ശൈലജ അറിയിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് എസ്

ഈസ്റ്റർ പ്രാർത്ഥനയ്ക്കിടെ കൊളംബോയിലെ സെന്റ് ആന്റ ണീസ് പള്ളിയിലും നെഗംബോ പള്ളിയിലും ബത്തിക്ക്ലോവ സയോൺ പള്ളിയിലുമാണ് ബോംബുകൾ പൊട്ടിയത്

ചാവേർ ബോംബാക്രമണമാണ് ഉണ്ടായതെന്ന് പൊലീസ് അറിയിച്ചു

ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രി പാല സിറിസേനയുമായും പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിച്ച് സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സർവീസസിന് ലുധിയാ നയിൽ ആതിഥേയരായ പഞ്ചാബിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോല്പിച്ചാണ് സർവീസസ് ജേതാക്കളായത്

സർവീസസിന്റെ ആറാം കിരീടമാണിത് ദോഹയിൽ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യദിനം ഇന്ത്യക്ക് രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും വനിതകളുടെ ജാവ്ലിൻ ത്രോയിൽ അന്നുറാണിയും പുരുഷന്മാരുടെ സ്റ്റീപ്പിൾ ചേസിൽ അവിനാഷ് സബ്ലേയുമാണ് വെള്ളി നേടിയത്

പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേൽ ഫൈനലിലെത്തി

റോയൽ ചലഞ്ചേഴ്സ് ഒരു റണ്ണിന് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ തോല്പി ച്ചു

ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി കാപ്പിറ്റൽസിനെ നേരിടും

സംസ്ഥാനത്ത് ഇന്നും ചിലയിടങ്ങളിൽ ശക്തമായ ഇടിയും മഴയും കാറ്റും ഉണ്ടാകാൻ സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു

വയനാട് പത്തനംതിട്ട ജില്ലക ളിൽ ശക്തമായ മഴയുടെ സാധ്യത മുൻനിർത്തി യെല്ലോ അലർട്ട് പ്രഖ്യാ പിച്ചു

കൊട്ടാരക്കര സ്വദേ ശിയായ ഒരാളെ കസ്റ്റഡിയിലെടുത്തു

ഇതാദ്യമായാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടുന്നത്